ത വാഹന വർക്ഷോപ്പുകൾ എല്ലാ ദിവസവും തുറക്കാൻ അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിറണായി വിജയൻ

വാർത്തകൾ വിശദമായി ഗൾഫ് രാജ്യങ്ങളിലെ കൊറോണാ ബാധിതരായ മലയാളികളടക്കം ഇന്ത്യക്കാർക്ക് സുരക്ഷിത ക്വാറന്റൈൻ ഒരുക്കാൻ എംബസികൾ വഴി അടിയന്തര സൌകര്യം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു

എസ് ജയശങ്കറിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് കുവൈറ്റിൽ പൊതു മാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇന്ത്യൻ എംബസി നൽകുന്ന എമർജൻസി സർടിഫിക്കറ്റിന്റെ അഞ്ചു ദിനാർ ഫീസ് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു

എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായി വിവരങ്ങൾ ലഭ്യമായാലേ മരണസംഖ്യ സംബന്ധിച്ച അന്തിമ കണക്ക് പറയാനാവൂവെന്നും പിണറായി വിജയൻ പറഞ്ഞു രുദ കർണാടകയിലെ ആശുപത്രികളിലേക്ക് കോവിഡ് ബാധിതരല്ലാത്ത രോഗികളെ കൊണ്ടു പോകുന്ന ആംബുലൻസുകൾ കടത്തിവിടാൻ ധാരണയായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തലപ്പാടി ചെക്ക് പോസ്റ്റിലെ കർണാടക മെഡിക്കൽ ടീം പരിശോധിച്ച ശേഷമായിരിക്കും യാത്രാനുമതി മെഡിക്കൽ സർടിഫിക്കറ്റും മറ്റു രേഖകളും കർണാടക സംഘം പരിശോധിക്കും ഇക്കാര്യം കർണാടക ഗവൺമെന്റ് ഇന്ന് സുപ്രീംകോടതിയെ അറിയിച്ചേക്കും അതിനിടെ ദേശീയപാത തുറക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കർണാടക സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്നുണ്ടായേക്കും ദേദ വാഹന വർക്ക് ഷോപ്പുകൾ എല്ലാ ദിവസവും തുറക്കാൻ അനുമതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കമ്പ്യൂട്ടർ സ്പെയർപാർട്സ് മൊബൈൽകടകൾ റീചാർജ്ജ് സെന്ററുകൾ എന്നിവ ആഴ്ചയിൽ ഒരു ദിവസം തുറക്കാൻ അനുമതി നൽകുന്ന കാര്യവും പരിശോധിക്കും ലോക്ക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ സാമ്പത്തികാവസ്ഥയെ പറ്റി ഗുലാത്തി പഠനകേന്ദ്രത്തോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു

കാസർകോട് ജില്ലയിലെ ഒമ്പത് പേർക്കും മലപ്പുറം ജില്ലയിലെ രണ്ടു പേർക്കും കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം ബാധിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു കാസർകോട് ജില്ലയിൽ രോഗം ബാധിച്ച ആറു പേർ വിദേശത്ത് നിന്ന് വന്നവരും മറ്റു മൂന്ന് പേർ രോഗബാധിതരുമായി ഇടപഴകിയവരുമാണ് മലപ്പുറത്തും കൊല്പത്തും നിസാമുദീനിൽ നിന്ന് വന്നവരിലാണ് രോഗം സ്ഥിരീകരിച്ചത് പത്തനംതിട്ടയിലെ രോഗബാധിതൻ വിദേശത്ത് നിന്ന് എത്തിയ വ്യക്തിയാണ്

ഇയാളുടെ സാമ്പിൾ പരിശോധനയ്ക്കയച്ചിരുന്നെങ്കിലും ഫലം ലഭിച്ചിട്ടില്ല

പുതുതായി പോസിറ്റീവ് കേസുകളില്ല നഗരപരിധിയിൽ രണ്ടിടങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം ശക്തമാക്കാൻ നഗരസഭ തീരുമാനിച്ചു

ലോക്ഡൌൺ നിർദേശങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ ജില്ലയിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കി പ്രധാന റോഡുകൾക്ക് പുറമെ ഉൾപ്രദേശങ്ങളിലും ആളുകൾ കൂട്ടം കൂടുന്നത് കണ്ടെത്താനും ഡ്രോൺ പ്രയോജനപ്പെടുത്തും ദേദ കൊല്ലം ജില്ലയിൽ ഇന്ന് ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഓയൂർ മിയന സ്വദേശിയായ യുവാവ് കൊറോണ കെയർ സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്നു

ഷാർജ്ജയിൽ നിന്നും നാട്ടിൽ എത്തിയ ഇലന്തൂർ നെല്ലിക്കാല സ്വദേശിക്കാണ് രോഗം ബാധിച്ചത്

വയനാട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേർ ഉൾപ്പെടെ ഒമ്പതു പേർ ആശുപത്രിയിലാണ് കഴിയുന്നത്

പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ഒരാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്ജ് ചെയ്തു അതിനിടെ ലോക്ക്ഡൌൺ നിയന്ത്രണം ലംഘിച്ച് രാത്രി അജ്ഞാതനെ തേടിയിറങ്ങിയ ആറു പേരെ ഗുരുവായൂർ പൊലീസ് അറസ്റ്റ് ചെയ്തു

ജില്ലയിൽ കൊറോണാ വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്ന് അധിക്യതർ അറിയിച്ചു

അനുമതി നൽകിയതിൽ കൂടുതൽ തൊഴിലാളികളെ തോട്ടത്തിൽ ജോലിക്ക് വെച്ചതിന് ഒരു ഏലത്തോട്ട ഉടമയ്ക്കെതിരെ കമ്പംമെട്ട് പൊലീസ് കേസെടുത്തു ആലപ്പുഴയിൽ കോവിഡ് ഭേദമായ ഒരാളെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു ഇപ്പോൾ ഒരാൾ മാത്രമാണ് ചികിത്സയിൽ കഴിയുന്നത് തബ് ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇയാളുമായി ഇടപഴകിയ നൂറു പേരെ വീടുകളിൽ നിരീക്ഷണത്തിലാക്കി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി

വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

കോവിഡിന്റെയും കൊറോണാ വൈറസ് വ്യാപനത്തിന്റേയും സങ്കീർണ സാഹചര്യത്തിലാണ് ഒരു ലോകാര്യോഗ്യ ദിനം കൂടി കടന്നു പോകുന്നത് കോവിഡ് പോരാട്ടത്തിൽ മുഖ്യ പങ്കു വഹിക്കുന്ന നഴ്സുമാർക്ക് ഇന്നത്തെ ദിനാചരണം സമർപ്പിക്കുന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ലോക ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന മികച്ച സംഭാവനകളെ ണഒഛ അഭിനന്ദിച്ചു ദേദ ചലച്ചിത്ര നടൻ ശശികലിംഗ നിര്യാതനായി പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയായ അദ്ദേഹം മലയാള സിനിമയിൽ സജീവമായിരുന്നു

ദര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്ത് നിന്നും മികച്ച പ്രതികരണം ലഭിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

തിരുവനന്തപുരം കോർപ്പറേഷനും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയും രണ്ട് കോടി രൂപ വീതം നൽകി